ന് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്നും ര ു ബംഗ്ലാദേശ് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു

ജവാൻ വീരമൃത്യൂ വരിച്ചു

ഉഗാ ൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി അവിടത്തെ പ്രധാന നേതാക്കളെയും കാണും

റുവാ യിൽ പ്രധാനമന്ത്രി ഇന്ത്യ റുവാ വ്യാപാര വ്യവസായികളുമായുള്ള ചർച്ചയേയും അഭിസംബോധന ചെയ്തു

കിഗാലിയിൽ വംശഹത്യ സ്മാരകത്തിലും അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രതിരോധം വ്യാപാരം കൃഷിയടക്കം എട്ട് കരാറുകളിൽ ഇന്ത്യയും റുവാ യും ഒപ്പൂവെച്ചു

റുപാ യിൽ ഉടൻതന്നെ ഇന്ത്യ നയതന്ത്രകാര്യാലയം ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി മോദി വെളിപ്പെടുത്തി

ആൾക്കൂട്ട കൊലപാതകങ്ങൾ തടയാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല ് സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടു ് ഇത്തരം പ്രവർത്തികൾ കഴിഞ്ഞ രം ോ മൂന്നോ വർഷത്തിനുള്ളിൽ തുടങ്ങിയതല്ല

ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാനടപടികൾ കൈക്കൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അടുത്തിടെ രാജസ്ഥാനിലെ ആൽവാറിൽ നടന്ന ആൾക്കൂട്ടകൊലയിൽ പോലീസ് ഇടപെടൽ ശരിയായ രീതിയിൽ ആയിരുന്നില്ലെന്ന് കോൺഗ്രസിലെ മല്ലികാർജ്ജുനഖാർഗെ പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അപകടകരമായ സ്ഥിതിവിശേഷം ഉ ാക്കുമെന്ന് സിപിഎം അംഗം മുഹമ്മദ് സലീം അഭിപ്രായപ്പെട്ടു

അറിയപ്പെടുന്ന റൂബൽ അഹ്മ്മദ്ദീനെയും മുസ എന്നറിയപ്പെടുന്ന മുഷറഫ് ഹുസൈനെയും ്യആണ് പിടികൂടിയത്

ഭീകരവിരുദ്ധ സേനയും പള്ഞർപ്രദേശ് പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് ഇവരെ പിടികൂടിയത്

അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴം പച്ചക്കറി വരവ് നിലച്ചതോടെയാണ് വില ഉയരുന്നത് തക്കാളി ചെറിയ ഉള്ളി പച്ചമുളക് പയർ കത്തിരി വെ യ്ക്ക തുടങ്ങി എല്ലാ പച്ചക്കറികൾക്കും വില കുത്തനെ ഉയർന്നതായി റിപ്പോർട്ടുകൾ ് സൂചിപ്പിക്കുന്നു

കരാറിലെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല യു പി എ ഗവൺമെന്റിന്റെ ഭരണകാലത്തും ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട ് വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു

ശ്രീനഗർ ബാറ്റ്മലൂ മേഖലയിൽ വൈകിട്ട് സി ആർ പി എഫ് സംഘത്തിനു നേരെ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിലാണ് ജവാൻമാർക്ക് പരിക്കേറ്റത്

മറ്റൊരു സൈനികനെ വിദഗ്ധ ചികിത്സയ്ക്കായി തീവ്രപരിചരണ് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുൾ മുജാഹിദീൻ ഏറ്റെടുത്തു

കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് നീലേശ്വരം

വികസനം ഏക്ക്വരിക്കേ ജില്ലകളിൽ പൊതുമേഖല സ്ഥാപനങ്ങളുടെ സ്ഫായത്തോടെ വിക്സനം നടപ്പിലാക്കുന്നതുമായി ബ്ലഡ്പ്പെട്ടുള്ള സെമിനാറിൽ സംസാരിക്കവെയാണ് ന്യൂഡൽഹിയിൽ ്വച്ച് ശ്രീ അമിതാഭ് കാന്ത് ഇങ്ങനെ പറഞ്ഞത്

എല്ലാവർക്കും പോഷകാഹാരം നൽകൂന്നത് തന്നെ പ്രയാസമേറിയ കാര്യമാണ്

ജില്ലകളുടെ സ്ഥിതി മാറിയാൽ മാത്രമേ ഇന്ത്യ മുന്നോട്ട് പോകു പിന്നാക്ക ജില്ലകളെ പുരോഗതിയിലേക്ക് നയിച്ചാൽ മാത്രമേ ഇന്ത്യ വികസിക്കുകയുള്ളൂ ഇതിന് പൊതുമേഖലാസ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും സ്കൂളുകളിൽ നല്ല വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തണം

പ്രൈമറി സ്കൂളുകൾ അപ്പർ പ്രൈമറി സ്കൂളുകളാക്കി ഉയർത്തണമെന്നും ശ്രീ അമിതാഭ് കാന്ത് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും സഭയെ ്രത്റ്റിദ്ധരിപ്പിച്ചെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കോൺഗ്ഗസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പാർലമെന്റ് നെട്ടപടികളെ കുറിച്ച് അറിവില്ലെന്ന് ശ്രീ അനന്ത് കുമാർ മാധ്യമൃ പ്രവർത്തകരോട് പറഞ്ഞു പ്രതിപക്ഷ നേതാക്കളെ ഗവൺമെന്റ് രഹസ്യമായി നിരീക്ഷിക്കുകയാണെന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുനഖാർഗെയുടെ ആരോപണം മന്ത്രി തള്ളിക്കളഞ്ഞു

ഇലക്ട്രോണിക് വ്യാപാര പോർട്ടലായ ഇ നാമുമായി കൂടുതൽ വിപണികൾ സംയോജിപ്പിച്ച് വരികയാണ്

വിഷയത്തിന്റെ ഗൌരവം മനസിലാക്കാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഉന്നയിച്ചിട്ടുള്ളതെന്നും ശ്രീ ഗോയൽ പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സത്യാവസ്ഥ മനസ്സിലാക്കാതെയുള്ള പ്രസ്താവനകൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം ശൈലിയാണെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ തെറ്റായി പ്പാർത്തകളാണ് ശ്രീ രാഹുൽ ഗാന്ധി പുറപ്പെടുവിക്കുന്നതെന്നും ശ്രീ പിയൂഷ് ഗോയൽ പറഞ്ഞു

സമ്മേളനത്തോടനുബന്ധിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശ്രീമതി രുചിര കാംബോജ് ആകാശവാണിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ശ്രീമതി രുചിര പറഞ്ഞു

ബി

ഇവർക്കുള്ള ശിക്ഷ നാളെ വിധിക്കും ഒന്നും ര പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും മറ്റുപ്രതികൾക്കെതിരെ വ്യാജരേഖ ചമയ്ക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളുമാണ് ചുമത്തിയിരിക്കുന്നത് ഇവരെ കോടതി റിമാൻഡ് ചെയ്തു

പ്രകൃത്ത് മഴയെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിലാണെന്നും വിഷയത്തിൽ ഗവൺമെന്റ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നുമുള്ള ് ആവശ്യമുന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള എം പി മാർ നൽകിയെനോട്ടീസിലാണ് സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നൽകിയത്

വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നടക്കുന്ന ചട ങ്ങിൽ അദ്ദേഹം ആംബുലൻസ് സർവ്വീസ് ഉദ്ഘാടനം ചെയ്യും

പയ്യന്നൂരിൽ സംഘടിപ്പിച്ച തുരീയം സംഗീതോത്സവത്തിൽ അദ്ദേഹം സംബന്ധിച്ചു